ബിഹാർ നാളെ ബൂത്തിലേയ്ക്ക് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് ഉൾപ്പെടെ താരപ്രചാരകരുമായി മൂസ്സാർഘട്ട പ്രചാരണം സജീവം

സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി

മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ബൌളിങ് തെരഞ്ഞെടുത്തു

ശനിയാഴ്ചയാണ് മൂന്നാംഘട്ടം

നാളെ നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കൂടുതൽ വിവരങ്ങളുമായി സുവർണ

രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് രാഘോപുർ പറു മിനാപുർ അലോളി ഉൾപ്പെടെയുള്ള എട്ട് നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വൈകുന്നേരം നാല് വരെയാകും വോട്ടെടുപ്പെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഇവിടെ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും തെരഞ്ഞെടുപ്പ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പശ്ചിമ ചമ്പാരനിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രതിപക്ഷ മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി പ്രസാദ് യാദവ് രാഷ്ട്രീയ ലോക് സമതാ പാർട്ടി നേതാവ് ഉപേന്ദ്ര കുഷ്വാഹ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു

പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതിനുമുക്ക് എല്ലാ വോട്ടർമാരുടെയും ശരീര ഊഷ്മാവ് പരിശോധിക്കും ഈ മാസം പത്തിനാണ് വോട്ടെണ്ണൽ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

അസമത്വവും വിവേചനവും അവസാനിപ്പിച്ച് മറ്റുള്ളവർക്കായി സേവനമനുഷ്ഠിക്കുന്നതിന് ഊന്നൽ നൽകിയ വ്യക്തിയാണ് ഗുരു രാംദാസെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അധ്യാപകർ വിദ്യാർഥികൾ ജീവനക്കാർ എന്നിവരെ പ്രവേശന കവാടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി വിദ്യാർഥികളുടെ ഹാജർ നിർബന്ധമല്ല രക്ഷിതാക്കൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം വിദ്യാർത്ഥികളെ സ്കൂളിൽ അയച്ചാൽ മതി ശാരീരിക അകലം പാലിക്കുന്നതിന് ഒരു വിദ്യാർത്ഥി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം സ്കൂളിൽ ഹാജരായാൽ മതി

ഒരിടത്തും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അവർക്ക് ഇഷ്ടമുള്ള വിഷയം തെരഞ്ഞെടുത്തു പഠനം ആരംഭിക്കാമെന്ന് മഹാരാഷ്ട്ര സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു

ബുദ്ധിമുട്ടില്ലാതെ ഇൻവോയ്സ് റഫറൻസ് നമ്പറുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ സംവിധാനം നികുതി സമർപ്പണവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പരമാവധി കുറയ്ക്കാനും സഹായിക്കും

പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം അരലക്ഷത്തിൽ താഴെയായി തുടരുന്നു

നിതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ കേന്ദ്ര ആരോഗൃ കുടുംബക്ഷേമ സെക്രട്ടറി ഡൽഹി സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഡൽഹി കോവിഡിന്റെ മൂന്നാം ഘട്ടത്തിലൂടെയാണ് കടന്ന് പോകുന്നതെന്ന് യോഗം വിലയിരുത്തി

മൂന്നു കോടിയിലധികം പേർ രോഗമുക്തരായി

ബ്രിട്ടനിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം തവണയും ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ചു

വിപണിയിലെ ആവശ്യം വർദ്ധിക്കുന്നത് പരിഗണിച്ചും സമ്പദ് വ്യവസ്ഥയിലെ കൂടുതൽ മേഖലകൾ പ്രവർത്തന സജ്ജമായതുമായ സാഹചര്യത്തിലാണ് വായ്പാപദ്ധതി നീട്ടിയത്

അബുദാബി ഷേഖ് സയദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കളിയിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബ്ലൌളിങ് തെരഞ്ഞെടുത്തു പ്ലേ ഓഫ് ഉറപ്പാക്കാൻ ഇരുടീമിന്നൂട് സൂർണായകമാണ് ഇന്നത്തെ മത്സരം

തോൽക്കുന്ന ടീമിന് നാളെ നടക്കുന്ന മുംബൈ ജന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരഫല്റ് ക്ലാ്ത്തിരിക്കണം